ജനങ്ങളുടെ ആഗ്രഹ സാഫലൃത്തിനുള്ള കൂട്ടായ പ്രവർത്തനമായിരുന്നു എൻ

എ കാഴ്ചവച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഒമാൻ എഴുത്തുകാരി ജോഖാ അൽഹാർത്തിക്ക് സാഹിതൃത്തിനുള്ള മാൻബുക്കർ പ്രൈസ്

എ കാഴ്ചവച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദാംശങ്ങളുമായി സുനീഷ് കുമാർ

ഡി എ നെടുംതൂണായി മാറിയതായി പ്രധാനമന്ത്രി പറഞ്ഞു ഇന്നലെ ഏപ്പെകുന്നേരം ന്യൂഡൽഹിയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ മുതിർന്ന് നേത്ാക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വോട്ടോ അധികാരമോ അല്ല എൻ

എ ലക്ഷ്യമിടുന്നതെന്നും മറിച്ച് നവഭാര്ത്രം നിർമ്മിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പാവങ്ങളെ സേവിക്കുന്നതും ദാരിദ്ര നിർമ്മാർജ്ജനവുമാണ് എൻ ഡി എ യുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി വൃക്തമാക്കിയതായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് യോഗത്തിന് ശേഷം വാർത്താ ലേകഖകരോട് പറഞ്ഞു ദേശീയ സുരക്ഷാ പ്രശ്നത്തിൽ എൻ ഡി എ അടിയുറച്ച് നിന്നുവെന്നും അതിനെ വിജയകരമായി മറികടന്നുകൊണ്ട് ചരിത്രത്തിൽ ഒരു അടയാളം രേഖപ്പെടുത്താൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്നും ശ്രീ

മൂന്ന് അംഗങ്ങൾ യോഗത്തിൽ സംബന്ധിച്ചിട്ടില്ല എന്നും എന്നാൽ അവർ അവരുടെ പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നും ശ്രീ

പ്രധാനമന്ത്രിയെ കൂടാതെ ബീഹാർ മുഖ്യമന്ത്രിയും ജെ

യു അധ്യക്ഷനുമായ നിതീഷ്കുമാർ ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെ ലോകജനശക്തി പാർട്ടി അധ്യക്ഷൻ രാംവിലാസ് പാസ്വാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാളി കെ പളനിസ്വാമി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

വൈകുന്നേരത്ത്രോടുകൂടി ഫലപ്രഖ്യാപനം പൂർണ്ണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

സുപ്പീറ്റ്കോടതി നിർദ്ദേശപ്രകാരം ഓരോ മണ്ഡലത്തിലെയും അഞ്ച് വി വി പാറ്റ് മെഷീനുകൾ തിരഞ്ഞെടുത്ത് വിവിപാറ്റ് സ്ലിപ്പുകളുമായി താരതമ്യം ചെയ്യും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സജ്ജീകരിച്ചിട്ടുള്ളത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് മൊബൈൽ ഫോണുകൾ പ്രവേശിപ്പിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്

വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് സുരക്ഷ എല്ലായിടത്തു ശക്തമാക്കിയിട്ടുണ്ട് രാവിലെ എട്ട് മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും

മാധ്യമ പ്രവർത്തകർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള പ്രത്യേക പാസ് ഉപയോഗിച്ച് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിക്കാവുന്നതാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നവരുടെ എണ്ണത്തിൽ കർശന നിയന്ത്രണം ഉണ്ട് മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ എന്നിവ കേന്ദ്രങ്ങളിൽ നിരോധിച്ചിട്ടുണ്ട്

വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ ഇവർ ഹാളുകളിൽ തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്

ന്യൂഡൽഹിയിൽ ഇന്നലെ പെട്രോളിയം പ്രകൃതിവാതക ്ര്യകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനിക്കാണ് സമിതി റിപ്പോർട്ട് സമർപ്പിച്ചത് ക്രൂഡ്ഓയിൽ ഇറക്കുമതിയോട് രാജ്യത്തിനുള്ള ആശ്രയത്വം കുറയ്ക്കുന്നതിന് കുറഞ്ഞ കാലാവധി ദീർഘകാലാവധി എന്നീ നിലകളിലുളള ഉപായങ്ങൾ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് സമിതിയുടെ ശുപാർശകൾ നയരൂപീകരണ സമയത്ത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പരിഗണിക്കും

അനിൽ കക്കോദ്കർ സാമ്പത്തിക നികുതി വിദഗ്ദ്ധൻ സിദ്ധാർത്ഥി പ്രധാൻ എന്നിവർ ഉന്നതതല സമിതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്

ആകാശവാണി എഫ്

സുരക്ഷാ സേനകളുടെ വാഹനവ്യൂഹത്തിന്റെ സുഗമമായ യാത്രയും സംസ്ഥാനത്തെ സുരക്ഷാ സ്ഥിതിഗതികളും മുൻനിർത്തിയാണ് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് തിങ്കളാഴ്ചയോടെ ദേശീയപാതയിലൂടെയുള്ള യാത്ര സാധാരണ ഗതിയിലാകുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്നാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്

മേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് ജമ്മുകാശ്മീർ പോലീസും സൈന്യവും സ്ട്യുക്തമായി നടത്തിയ തിരച്ചിലിനിടെ സുരക്ഷാ സേനയ്ക്കുനേള് ഭൂീകരർ വെടിയുതിർക്കുകയായിരുന്നു ഏറ്റുമുട്ടൽതുടരുകയാണെന്ന് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു

ഇതുവരെ ആറുപേരെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്

എസ് ആർ

റഡാർ സംവിധാനത്തിലൂടെ ഭൌമ ചിത്രം സാധ്യമാക്കുന്ന ഉപഗ്രഹം പി എസ് എൽ

രാത്രിയും പകലും കാലാവസ്ഥാ വ്യതിയാനം മനസിലാക്കുന്നതിനും സാധിക്കും മേഘങ്ങൾ ഉള്ളപ്പോഴും ഇത് സാക്യിമാക്കുന്നതാണ്

വർത്തമാന കാലത്തെയും ഭൂതകാലത്തെയും സങ്കീർണമായ അടിമ ജീവിതം നയിക്കുന്ന മൂന്ന് സഹോദരിമാരുടെ കഥ പറയുന്നതാണ് കൃതി അറബിഭാഷയിൽ നിന്ന് മാൻബുക്കർപ്രൈസ് നേടുന്ന ആദ്യ എഴുത്തുകാരിയാണ് അൽഹാർത്തി

കെ യിലെ പരിഭാഷകയായ മാരിലിൻ ബൂത്തുമായി പങ്കുവയ്ക്കും

ചെന്നൈയിൽ സ്വകാര്യ മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ ബിരുദദാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവിധ തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ കൂട്ടിച്ചേർക്കുന്നതുവഴി മാനേജ്മെന്റ് രംഗത്ത് നൂതന പരിഹാര മാർഗങ്ങൾ ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു നവ മാധ്യമങ്ങൾ നിർമിത ബുദ്ധി എന്നിവയിൽ കൂടുതൽ വിദ്യാർത്ഥികൾ താൽപര്യം പ്രകടിപ്പിക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു

കാർട്ടർ ഫൈനലിൽ നേപ്പാളിലെ മാലാ റായിയെയാണ് മേരികോം തോൽപ്പിച്ചത്

ശിവാതാപ്പയും അമിത് വംഗലും ഇന്ന് കളത്തിലിറങ്ങും

എൻ റിപ്പോർട്ട് ശക്തമായ ഗാർഹിക ഉപഭോഗത്തിലേക്കും നിക്ഷേപത്തിലേക്കും തിരിച്ചുവരുന്നതിലൂടെയാണ് ഈ നേട്ടം കൈവരിക്കുക